ഇന്തൃയുടെ ആഭൃന്തര കാരൃങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും അയൽരാജൃങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ വിട്ടു നിൽക്കണമെന്ന് ഉപരാഷ്ട്രപതി എം

കേരളത്തിൽ മഴ ശക്തമാകുന്നു വെള്ളപ്പൊക്കത്തിനു സാധ്യത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം

റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് കോവിഡ് പ്രതിസന്ധി സാമ്പത്തിക മേഖലയിൽ സൃഷ്ടിച്ച ആഘാതം മറികടക്കാനുള്ള ധനനയം തുടരും

കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്ന സുഷ്മ സ്വരാജ് ആധുനിക സംസ്കാരത്തിന്റെയും പരമ്പരാഗത മൂലൃങ്ങളുടെയും സമന്വയമാ ണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖല യിൽ അടിസ്ഥാന സ്ട്രകര്യ് വികസനത്തിന് ശക്തമായ നടപടിക ളാണ് സർക്കാർ സ്വീകരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭൃമാക്കുന്നതിനായി നില വിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ നയം വിവിധ പഠന മേഖലകൾ കൂട്ടിച്ചേർത്തുള്ളതാണ്

ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് ആരംഭിച്ച പി എം

പ്രധാനമന്ത്രി ഇന്നൊവേറ്റീവ് ലേർണിംഗ് പ്രോഗ്രാം എന്ന സംരംഭം വിദ്യാഭ്യാസരംഗത്തെ ശ്രദ്ധേയമായ കാൽവയ്പാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിദ്യാഭ്യാസ മന്ത്രാലയവും പ്രിയു ജീീസിയുമായി ചേർന്നാണ് സമ്മേ ളനം സംഘടിപ്പിക്കുന്നത്

ഇതുവരെയുള്ള കണക്കു പ്രകാരം സംസ്ഥാനത്ത് ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടിയ സംഖ്യയാണിത്

ജമ്മുകശ്മീർ വിഷയത്തിൽ യുഎൻ രക്ഷാസമിതിയിൽ ചർച്ച വേണമെന്ന ചൈനീസ് നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമായ ഈ വിഷയം ഇതാദൃമല്ല ചൈന യുഎന്നിൽ ഉയർത്തുന്നതെന്ന് വിദേശ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

അയോധൃയിലെ രാമക്ഷേത്ര നിർമാണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണമായാണ് വിദേശ കാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ ഇക്കാര്യം അറിയിച്ചത്

അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം നടത്തുകയും സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മതപരമായു അവകാശം നിഷേധിക്കു കയും ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്ന് ഇത്തരം പ്രതികരണം ഉണ്ടാവുന്നതിൽ അത്ഭുതമില്ലെന്നും അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ വിവിധയിടങ്ങളിൽ അട്ടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും അതീവ ജാഗ്രത പാലിക്കാനും തയ്യറെടുപ്പുകൾ നടത്താനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദേശിച്ചു വയനാട് ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വടക്കൻ ജില്ലകളിൽ കനത്ത മഴയാണ് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു

മൂന്നു ബോട്ടുകൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുമായി എത്തിയ സംഘം ജില്ലാ കലകൂർ ഡി ബാലമുരളിയുമായി കൂടിക്കാഴ്ച്ച നടത്തി

റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് റിസർവ് ബാങ്ക് ധനനയ അവലോകന യോഗത്തിൽ തീരുമാനിച്ചു

പണപ്പെരുപ്പം പിടിച്ചു നിർത്താനും ലോക്ക്ഡൌൺ മൂലമുണ്ടായ സാമ്പത്തിക മാന്ദ്യം മറികടക്കാനും ശ്രമം തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഡോ

ഡിജിറ്റൽ ഇടപാട് പ്രോൽസാഹിപ്പിക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാലത്തേക്ക് വായ്പകൾ ക്രമീകരിക്കാൻ അവസരം ലഭിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം നാമനിർദ്ദേശം സമർപ്പിക്കേണ്ടതെന്ന് മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു